ആവശ്യമില്ലെന്ന് ഹൈക്കോടതി

രാജ്യവ്യാപകമായി ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിപ്പുമുടക്കുന്നു

വിജയിച്ചില്ലെന്ന് മധ്യസ്ഥ സമിതി റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും

നാളെ ഫ്ളോറിഡയിൽ തുടക്കമാകും ഷുഹൈബ് വധക്കേസ് കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി കേസിൽ പോലീസന്വേഷണം തൃപ്തികരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി കേസിൽ നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു

ഉദ്ഘാടനം നിശ്ചയിച്ച ഓഫിസ് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്

പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകിട്ട് ആറ് വരെ പേരാമ്പ്രയിൽ ഹർത്താലിന് ക്ടോൺഗ്രസ് ബ്ലോക്ക് കമ്മറ്റി ആഹാനം ചെയ്തിട്ടുണ്ട്

് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫിസ് അദ്ദേഹത്തിന്റെ അസൌകര്യം മൂലം പരിപാടി മാറ്റുകയായിരുന്നു

ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി പട്ടിക വർഗ്ഗ കമ്മീഷൻ ഇന്ന് ക്യാമ്പിലെത്തി തെളിവെടുപ്പ് നടത്തും പോലീസ് ക്യാമ്പിൽ കുമാറിന് നേരെ ജാതീയമായ അധിക്ഷേപമോ മർദ്ധനമോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് തെളിവെടുപ്പ് ഇതിനിടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുമാറിന്റെ ഭാര്യ സജിനി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഡാം ഇൻട്രോ ഇടുക്കിയിലെ അണക്കെട്ടുകളോടു ചേർന്ന് പാറകൾ അടർന്നു വീഴുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഭൌമശാസ്ത്രജ്ഞർ പഠനം നടത്തണമെന്ന ആവശ്യം ശക്തമായി ഡാം സുരക്ഷാ അതോറിട്ടിയും ഇതു സംബന്ധിച്ച ശുപാർശ നൽകി കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുള്ള ജില്ലാതല ബോധവത്കരണ പരിപാടിയും നടക്കും മെഡിക്കൽ കൌൺസിൽ ബിൽ മെഡിക്കൽ കൌൺസിൽ ബിൽ രാജ്യസഭയിൽ പാസ്റ്റാക്കിയതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പുമുടക്കും പിജി പ്രവേശന പരീക്ഷയ്ക്കുള്ള മാനദണ്ഡമായി അവസാന വർഷ എം ബി എസ് പരീക്ഷ ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ കൌൺസിൽ ബില്ലിലെ വൃവസ്ഥയ്ക്കെതിരെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം ബില്ലിനെതിരെയുള്ള തുടർനടപടികൾ ഞായറാഴ്ച ആലുവയിൽ ചേരുന്ന എമർജൻസി ആക്ഷൻ കൌൺസിൽ യോഗത്തിനു ശേഷം തീരുമാനിക്കുമെന്ന് ഐ

എ കേരള ഘടകം അറിയിച്ചു

ഐ എം എയുമായി ആലോചിച്ച് തുടർസമരപരിപാടികൾ ആല്പോചിക്കാൻ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് സമരം കോഴിക്കോട് കുറ്റിയാടി ജലസേചന പദ്ധതിക്കായി സ്ഥലം വിട്ട് നല്കിയവർക്ക് പകരം നല്കിയ ഭൂമിയിൽ മരം മുറിക്കാനുളള അനുമതി സംബന്ധിച്ച നടപടിക്രമങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫിസിന് മുന്നിൽ കർഷകർ കുത്തിയിരിപ്പ് സമരം തുടരുന്നു നേരത്തെ ഇതുസംബന്ധിച്ചു വിഷയത്തിൽ കർഷൻ ഒരു ആത്മഹത്യഭീഷണി മുഴക്കുകയും പ്രശ്നപരിഹാര ഫോർമുല രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു

ഇന്നും വാദം തുടരുന്ന കേസിൽ റായ്ബറേലിയിലെ ജയിലിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ബന്ധുവിന്റെ അപേക്ഷയും കോടതി പരിഗണിക്കും റായ്ബറേലിയിലെ ജയിലിൽ നിന്നും ന്യൂഡൽഹിയിലെ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ബന്ധുവിന്റെ അപേക്ഷ സ്പ്ലാഷ് സംസ്ഥാന ഗവൺമെന്റിന്റെ നീന്തൽ പരിശീലന പദ്ധതിയായ സ്പ്ലാഷിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് തൃശൂർ കരൂപ്പടന്ന ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ നടക്കും

ആർ സുനിൽകുമാർ എംഎൽഎ പദ്ധതി ഉദ്ഘാടനം ചെയ്യും

കോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുള്ള ജീവനകല ആചാര്യൻ ശ്രീ

രവിശങ്കർ അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരുൾപ്പെട്ട സമിതിയെ മധ്യസ്ഥ ചർച്ചകൾക്കായി സുപ്രീംകോടതി നിയോഗിച്ചത്

പ്രശ്നത്തിൽ ചർച്ച ആവശ്യമായി വന്നാൽ അത് പാകിസ്ഥാനുമായി മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചു ഇക്കാര്യം യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയെ അറിയിച്ചതായി വിദേശകാര്യമന്ത്രി എസ്

ഇന്ത്യയും പാകിസ്ഥാനും ആവശ്യപ്പെട്ടാൽ കശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇന്ത്യ നിലപാട് വൃക്തമാക്കിയത് ആലപ്പുഴ ഇൻട്രോ കുട്ടനാട്ടിൽ രണ്ടാം കൃഷി പുരോഗമിക്കുന്ന പാടശേഖരങ്ങളിൽ ഓല ചുരുട്ടി പുഴുവിന്റെ ആക്രമണം

കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രവികുമാർ വോയിസ്

ചർച്ചകൾ അവസാനിപ്പിച്ച് വിധി നടപ്പാക്കാൻ തയാറായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സഭാനേതൃത്വം കോട്ടയത്ത് പറഞ്ഞു ഡിഫ്ത്തീരിയ തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലും ഡിഫ്ത്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മുറ്റത്തെ മുല്ല സംസ്ഥാന ഗവർണമെന്റ് നടപ്പാക്കിയ മുറ്റത്തെ മുല്ല ലഘുവായ്പാ പദ്ധതിയുടെ ഒന്നാം വാർഷികാഘോഷം ഇന്ന് ഉച്ചയ്ക്ക് പാലക്കാട് മങ്കരയിൽ മന്ത്രി കടകംപളളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

എസ് ആർ പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കിയ ഇലക്ട്രിക്കൽ ജോലികളുടെ സമർപ്പണം ഇന്ന് മന്ത്രി സി

ചടങ്ങിൽ സ്തുത്യർഹ സേവനം നടത്തിയ ഇലക്ട്രീഷ്യന്മാരെ ആദരിക്കും

ഇന്ത്യൻ ്സമയം രാത്രി എട്ടിനാണ് മത്സരങ്ങൾ ടിന്റി ട്വന്റി റാങ്കിങ്ങിൽ ് ഇന്ത്യ അഞ്ചാംസ്ഥാനത്തും വെസ്റ്റിന്റീസ് ഒൻപതാമതുമാണ്

ഐ എസ് എല്ലിൽ ൽ നിന്ന് അഞ്ച് ഐ ലീഗിൽ നിന്ന് ആറ് ഐ ലീഗ് രണ്ടാം ഡിവിഷനിൽ നിന്ന് ഒന്ന് രാജ്യത്തെ വിവിധ സായുധസേന വിഭാഗങ്ങളിലെ നാല് ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്രൂപ്പ് ജേതാക്കൾ നേരിട്ട് സെമി സൈനലിലേക്ക് കടക്കും